പ്രശ്നങ്ങളിൽ സർക്കാരിന് തുറന്ന സമീപനമാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

സാധ്യതകളാണ് ഉള്ളതെന്ന് ക്ലേന്ദ്രമന്ത്രി രമേഷ് പൊഖ്രിയാൽ നിഷാങ്ക്

അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിച്ച് ബോഗികൾ അണുവിമുക്തമാക്കുന്ന രാജൃത്തെ ആദ്യ മെട്രോ റെയിൽ എന്ന ബഹുമതി ലഖ്നൌ മെട്രോയ്ക്ക്

ബഡ്ജറ്റ് സമ്മേളനത്തോടനുബന്ധിച്ചുള്ളിട്ട് സർവകക്ഷിയോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു റിപ്പോർട്ട്

സർവ്വകക്ഷിയോഗത്തിൽ മന്തിയെ നേതാക്കൾ ഉയർത്തിയ പ്രശ്നങ്ങളിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ സന്നദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

സഭ തടസ്സപെട്ടാൽ ചെറിയ പാർട്ടികൾക്ക് തങ്ങളുടെ ഭാഗം പറയാൻ മതിയായ അവസരം കിട്ടില്ല

റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിലെ അക്രമസംഭവങ്ങളിൽ നിയമം അതിന്റെ വഴിക്ക് പോകും

രാഷ്ട്രപിതാവ് രക്തസാക്ഷിത്വം വരിച്ച ദിനത്തിൽ പ്രധാനമന്ത്രി മഹാത്മാവിന് ആദരമർപ്പിച്ചു

അമേരിക്കയിൽ ഗാന്ധിജിയുടെ പ്രതിമ തകർത്തതിനെയും പ്രധാനമന്ത്രി അപലപിച്ചു

ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിസ്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാംസ്കാരിക മന്ത്രി പ്രഹ്ളാദ് സിംഗ് പട്ടേൽ ആരോഗൃ മന്ത്രി ഡോ

വിദ്യാർത്ഥികൾ അധ്യാപകർ പാഠ്യപദ്ധതി അടിസ്ഥാനസൌകരൃങ്ങൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് വിദ്യാഭ്യാസ നയം ഗൾഫ് രാജ്യങ്ങളിൽ സി ബി എസ് ഇ യുടെ അംഗീകാരമുള്ള സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരുമായി നടത്തിയ വിർച്ചൽ യോഗത്തിലാണ് മന്ത്രി ഇക്കാരൃം പറഞ്ഞത് കൂട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നേരത്തേ തന്നെ നൽകണമെന്ന് ശ്രീ

ഹിന്ദി സാഹിതൃത്തിനും വിദ്യാഭ്യാസത്തിനും നൽകിയ സംഭാവനകൾക്ക് ശ്രീ നിഷാങ്കിന് ഗ്യാൻ സരോവർ പുരസ്കാരം യോഗത്തിൽ വച്ച് ഗൾഫ് സി ബി എസ് ഇ സ്കൂളുകളുടെ കൂട്ടായ്മ കൈമാറി

അന്വേഷണം നടക്കുകയാണെന്നും ഇന്ത്യ എല്ലാ പിന്തുണയും സുരക്ഷയും ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിച്ച മിനിബസ് എതിരെ വന്ന ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് സംഭവത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ദുഃഖം രേഖപ്പെടുത്തി

അനന്ത്നാഗ് ജില്ലയിൽ നിന്നാണ് ഇവ പിടിച്ചെടുത്തത് ജമ്മു മേഖലയിൽ നിന്ന് പുലി നഖവും പുലിയുടെ തലയോട്ടിയും എല്ലുകളും പിടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് പേരെ അറസ്റ്റ് ചെയ്തു

ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലൂടെയും ആകാശവാണിയുടെ വെബ്സൈറ്റ് ദൂരദർശൻ എന്നിവയിലൂടെയും പരിപാടി തൽസമയം ശ്രോതാക്കളിലെത്തും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്തിക്കേഷനിലൂടെയും ഇത് ലഭ്യമാകും

ന്യൂയോർക്ക് മെട്രോയുടെ അനുഭവത്തിൽ നിന്നാണ് ഉത്തർപ്രദേശ് മെട്രോ റെയിൽ കോർപ്പറേഷൻ അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിച്ചുള്ള ശുചീകരണ സംവിധാനം സ്വീകരിച്ചതെന്ന് ആകാശവാണി ലക്നൌ ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു ആശുപത്രികളിലെ ഓപ്പറേഷൻ തീയേറ്ററുകൾ അണുവിമുക്തമാക്കുന്നതിന് സമാനമായ രീതിയിലാണ് ട്രെയിൻ ബോഗികളും അണുവിമുക്തമാക്കുന്നതെന്ന് ലക്നൌ മെട്രോ റെയിൽ കോർപ്പറേഷൻ അധികൃതർ പറഞ്ഞു

ഉപകരണത്തിന് കഴിഞ്ഞ ഒക്ടോബറിൽ ഡി

ഡി

ഇതുവഴി ജനങ്ങളിൽ സുരക്ഷിത യാത്രയ്ക്കുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ലക്നൌ മെട്രോയ്ക്ക് കഴിഞ്ഞതായി മാനേജിംഗ് ഡയറക്ടർ കുമാർ കേശവ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

കോവോവാക്സ് എന്ന മരുന്നിന്റെ പരീക്ഷണത്തിന് അനുമതി തേടിയിട്ടുണ്ടെന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സി

ഇന്ത്യയുടെ പൌരാണിക ആത്മീയ അറിവുകൾ പങ്കുവയ്ക്കുന്ന മാസികയാണ് പ്രബുദ്ധ ഭാരതം

എൽ ഫുട്ബോളിൽ മുംബൈ സിറ്റി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം ആരംഭിച്ചു ഗോവയിലാണ് മത്സരം